ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ര ാംഘട്ട വോട്ടെടുപ്പ് നാളെ

മഴയും കൊടുങ്കാറ്റും ദുരന്തം വിതച്ച കർഷകർക്കൊപ്പം തന്റെ ഗവൺമെന്റ് ാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കാലംതെറ്റി പെയ്ത മഴ രാജ്യത്ത് പിപിധയിടങ്ങളിൽ ജനജീവിതം ദുസ്സഹമാക്കി

ഐ പി എല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർകിംഗ്സ് സൺറൈസേഴ്സ് ഹൈദ്രാബാദ് പോരാട്ടം

എന്നാൽ അനധികൃതമായി പണം ക ത്തിയതിനെ തുടർന്ന് തമിഴ്നാട് വെല്ലൂരിലെ വോട്ടെടുപ്പ് റദ്ദാക്കി ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റി

രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ്

ബീഹാറിലെ കതിഹാർ ഉൾപ്പെടെയുള്ള അഞ്ച് ലോക്സഭാ സീറ്റുകളിലും നാളെയാണ് വോട്ടെടുപ്പ്

ഇവിടെ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ മാധയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു കനത്ത മഴയും കൊടുങ്കാറ്റും ദുരന്തം വിതച്ച കർഷകർക്കൊപ്പം ഗവൺമെന്റ് നിലകൊള്ളുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എൻ ഡി എ അധികാരത്തിൽ എത്തിയാൽ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്നും ഇതിനായി പ്രത്യേക ജലശക്തി മന്ത്രാലയം രൂപീകരിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി കേരളത്തിൽ പ്രചാരണം തുടരുന്നു

വയനാട്ടിലെ ജനങ്ങളുമായി കുറച്ച് നാളത്തേയ്ക്ക് മാത്രമല്ല ആജീവനാന്ത ബന്ധം സൃഷ്ടിക്കാനാണ് തന്റെ ആഗ്രഹമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് ചാലക്കുടിയിലും പ്രതൃശൂരിലും എൽഡിഎഫ് സ്ഥാനാർഥികളുടെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു പ്രധാനമന്ത്രി ന്ത്രേന്ദമോദി നാളെ വീ ും പ്രചാരണത്തിനായി കേരളത്തിലെത്തും വൈകിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തില്ല് പ്രചാരണ റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും

ഭോപ്പാൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിനെതിരെ ബി ജെ പിയുടെ സാത്വി പ്രഗ്യാ സിംഗ് താക്കൂറും വിദിഷയിൽ രമാകാന്ത് ഭാർഗവും ഗുണയിൽ ഡോ

മധ്യപ്രദേശിലെ സാഗർ ലോക്സഭ സീറ്റിലേക്ക് രാജ് ബഹ്ദൂർ സിംഗും ബി ജെപി ക്ക് വേ ി ജനവിധി തേടും

പരാമർശത്തിൽ കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് ബി ജെ പി വക്താവ് ജി വി എൽ നരസിംഹറാവു ആവശ്യപ്പെട്ടു ഗെഹ്ലോട്ടിനെതിരെ നടപടിയെടുക്കണമെന്നും രാഷ്ട്രപതിക്കെതിരായ പരാമർശങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളെ വിലക്കണമെന്നും ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിഷനോട് ആവശ്യപ്പെട്ടിട്ടു ് ്

അദ്ദേഹം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇതിനകം തന്നെ രാജി വച്ചിരുന്നു മധുബാനി മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഫാത്തിമി അറിയിച്ചു അതേസമയം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി പ്രസാദ് യാദവ് പറഞ്ഞു

സ്വതന്ത്രവുമായ വോട്ടെടു്പ്പിനായി വിവേക് ദുബയെ പ്രത്യേക പോലീസ് നിരീക്ഷകനായി ഇതിനകം തന്നെ നിയോഗിച്ചിട്ടു ്

മരണസംഖ്യ ഏറ്റവും കൂടുതൽ രാജസ്ഥനിലാണ്

വടക്കൻ ഗുജറാത്തിലും സൌരാഷ്ട്ര മേഖലയിലും ഉ ായ കനത്ത മഴയിൽ പത്ത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഇടിമിന്നലേറ്റും മരങ്ങൾ കടപുഴകിയുമാണ് അപകടങ്ങൾ കൂടുതലും ഉ ായത്

വരും ദിവസങ്ങളിലും കാലാവസ്ഥ മോശമായി തന്നെ തുടരുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ര ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും നനസഹായം പ്രഖ്യാപിച്ചിട്ടു ്

കനത്ത മഴയും കൊടുങ്കാറ്റും ദുരന്തം വിതച്ച സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്രം നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു സംഭവത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും അനുശോചനം രേഖപ്പെടുത്തി

വിവിധയിടങ്ങളിൽ വേനൽമഴ ലഭിച്ചു അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ജൈനമത വിശ്വാസ പ്രകാരം പരമ്പരയിലെ അവസാന ്തീർത്ഥങ്കരനാണ് മഹാവീരൻ

ബീഹാറിൽ മഹാവീരന്റെ ജന്മസ്ഥലമായ കുന്താൽപൂരിലാണ് പ്രധാന ആഘോഷങ്ങളെല്ലാം നടന്നത് മഹാവീരൻ നൽകിയ സമാധാനം അഹിംസ എന്നിവയ്ക്കായുളള ഉദ്ബോധനങ്ങൾ നമ്മുടെ സംസ്കാരത്തെ സമ്പുഷ്ടമാക്കിയതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു മഹാവീരന്റെ ഉദ്ബോധനങ്ങൾ ധർമ്മപാതയിൽ മുന്നേറാനുളള മാർഗദർശനമാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പറഞ്ഞു ഭാരതത്തിന്റെ തിളങ്ങുന്ന പ്രതീകമാണ് ഭഗവാൻ മഹാവീരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു

ബംഗബന്ധു ഷെയ്ക്ക് മുജിബുർ റഹ്മാനെയാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിലും പ്രസിഡന്റായി പ്രഖ്യാപിച്ചത്

അർജന്റീന ഓസ്ട്രേലിയ ന്യൂസിലാന്റ് എന്നിവിടങ്ങളിൽ നടന്ന പ്രൊ ലീഗ് മത്സരങ്ങൾക്ക് ദേശീയ ടീമിനെ പങ്കെടുപ്പിക്കാത്തതിന്റെ പേരിലാണ് നടപടി

എന്നാൽ പാകിസ്ഥാൻ ഹോക്കി ഫെഡറേഷൻ ഇത്രയും ഉയർന്ന തുക പിഴയായി നൽകാനുള്ള സ്ഥിതിയിലല്ലെന്ന് സെക്രട്ടറി ജനറൽ ഷഹബാസ് അഹമ്മദ് കറാച്ചിയിൽ പറഞ്ഞു പിഴത്തുക കുറയ്ക്കാനും തുക തവണകളായി അടയ്ക്കാനുള്ള സൌകര്യം ഒരുക്കാനും ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു

ശ്വാസം മുട്ടിക്കൽ വൈദ്യുതി ഷോക്ക് തുടങ്ങിയ നിരവധി ക്രൂരതകളാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ യു എൻ ദൌത്യ സംഘത്തിന്റെയും ്യു എൻ മനുഷ്യാവകാശ ഓഫീസിന്റേയും സംയുക്ത റിപ്പോർട്ടാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത്